പിണറായി വിജയൻ വിവിധ ദുരിതാശ്ചാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു പുനൃരധിവാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി

വലിയ പ്രളയമാണ് ക്ലേരളത്തിലുണ്ടായതെന്നു അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ കുട്ടനാട്ടിൽ വെള്ളിക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല

തടസ്സമുണ്ടെങ്കിൽ പരിഹരിക്കാൻ പ്രധാനമന്ത്രിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

എഴുത്തുകാരനുമായ കുൽദീപ് നയ്യാർ അന്തരിച്ചു

മെഡലുകളോടെ ഏഴാം സ്ഥാനത്ത്

കോഴഞ്ചേരി ചെങ്ങന്നൂർ വടക്കൻ പറവൂർ ആലപ്പുഴ ചാലക്കുടി എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത് രാവിലെ ചെങ്ങന്നൂരിലെ ക്രിസ്ത്യൻ കോളേജ് കോഴഞ്ചേരി എം ജി എം ഓഡിറ്റോറിയം ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പ്രളയബാധിതരോട് വിവരങ്ങൾ ആരാഞ്ഞു ഏതു പ്രതിസന്ധിയിലും ഗവൺമെന്റ് ഒപ്പമുണ്ടെന്നും ഇപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും പരിഹ്രിക്കുമെന്നും മുഖ്യമുന്ത്രി വ്യക്തമാക്കി

വടക്കൻ പറവൂരിലെ മൂന്ന് ദൂരിതാശ്വാസ കൃാമ്പുകൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം പുനരധിവാസ പരിപാടികൾക്കാണ് ഗവൺമെന്റ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്

മന്ത്രി ഇ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

കാലടി പെരുമ്പാവൂർ ആലുവ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് ഇടുക്കി ഇടമലയാർ ഡാമുകളിൽ നിന്നുള്ള് വെള്ളം മാത്രമല്ല കാരണം

അച്ചൻകോവിലാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് പന്തളം പ്രദേശത്തെ വെള്ളത്തിലാഴ്ത്തിയത്

നിലമ്പൂരിൽ വെള്ളപ്പൊക്കമുണ്ടായതു ചാലിയാറിലെ വെള്ളംമൂലമാണ്

അപ്പോൾ വെള്ളപ്പൊക്കത്തിനു കാരണമായത് ഡാം ് തുറന്നുവിട്ടതുകൊണ്ടാണെന്ന വാദത്തിന് യുക്തിയില്ല

ഇത്തവണ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് നീരൊഴുക്ക് ക്രമാതീതമായി കൂടി പറമ്പിക്കുളം തമിഴ്നാടിന്റെ ഷോളയാർ ഡാമുകളിൽ നിന്നുള്ള വെള്ളം കൂടി വന്നതോടെ ചാലക്കുടിയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയായിരുന്നു

ടടടടടടട ഡാമുകൾ ഡാമുകൾ തുറന്ന് ജലം ഒഴുക്കി വിട്ടതാണ് സംസ്ഥാനത്തുണ്ടായ പ്രളയത്തിന് കാരണമെന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് വൈദ്യുതി മന്ത്രി എംഎം മണി പറഞ്ഞു ഡാമുകൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർണമായി പാലിച്ചു

പമ്പാ തീരത്ത് ദേവസ്വംബോർഡ് ഇപ്പോൾ പുതിയ നിർമ്മാണങ്ങൾ ഒന്നും നടത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായ പമ്പ ആനത്തോട് അണക്കെട്ടുകൾ തുറന്നതോടെയാണ് പമ്പ ത്രിവേണി വെള്ളത്തിൽ മുങ്ങിയത്

നിലവിലുള്ള നയത്തിന്റെ ഭാഗമായാണ് ഇത്

ട്ടടടടട റേഷൻ കാർഡ് സംസ്ഥാനത്തെ പ്രളയക്കെടുതി അനുഭവിച്ച സ്ഥലങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡൊന്നിന് അഞ്ച് കിലോ അരി വീതം സൌജന്യമായി വിതരണം ചെയ്യുമെന്ന് മന്ത്രി പി

ഓണത്തിന് മുൻപു തന്നെ അരി വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കുൽദീപ് നയ്യാർ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യാ

കുൽദീപ് നയ്യാരുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി എം

ഇന്നലെ ഷൂട്ടിംഗിൽ രാഹി സർണോബാത്താണ് ഇന്തൃയ്ക്കുവേണ്ടി സ്വർണം നേടിയത്

വുഷുവിൽ നാല് വെങ്കലവും ഇന്ത്യ നേടി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന വിവിധ അത്ലറ്റിക്സ് മത്സരങ്ങൾ ഇന്ന് നടക്കും